ഇന്ത്യ നേപ്പാൾ പ്രഥമ വാതക പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനം ഇരുരാജൃങ്ങളിലെയും പ്രധാനമന്ത്രിമാർ ചേർന്ന് നിർവ്വഹിച്ചു

സമഭാവനയുടെ സന്ദേശമുയർത്തി നാളെ തിരുവോണം

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിച്ചു

നേപ്പാളിന്റെ വികസനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ദക്ഷിണേഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര വാതക പൈപ്പ്ലൈനാണിത് ബീഹാർ മോത്തിഹാരിയെയും നേപ്പാൾ അമലേഖ് ഗഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ പ്രകൃതി സൌ്ദ്യഹാർദ്ദ പെട്രോൾ വിതരണം ഉറപ്പുവരുത്തുന്നു

രണ്ടാംദിവസമായ ഇന്ന് അദ്ദേഹം ഐസ്ലൻഡ് പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തി വ്യാപാര സാംസ്കാരിക രംഗങ്ങളിൽ കൂടുതൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു പ്രതിനിധിതല ചർച്ചകൾക്കു ശേഷം ചില ഉടമ്പടികളിലും ഒപ്പു വച്ചു ഐസ്ലൻഡ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച പരിപാടിയിൽ ശ്രീ കോവിന്ദ് പ്രഭാഷണം നടത്തും ഐസ്ലൻഡ് കൂടാതെ സ്വിറ്റ്സർലൻഡും സ്ളോവേനിയയും അദ്ദേഹം സന്ദർശിക്കും

കൂടുതൽ വിവരങ്ങളുമായി ഉദയകുമാർ

ജമ്മുകാശ്മീരിൽ നിന്നുള്ള തദ്ദേശ ഭരുണ് പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നുംഉപരാഷ്ട്രപതി

കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യഭാഗമാണെന്ന് വിദേകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

കശ്മീരിന്റെ സ്സ്വത്തും ബാധൃതകളും പുതിയ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കിടയിൽ വീതിക്കുന്നത് സംബന്ധിച്ച് പാനൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ

മുൻ പ്രതിരോധ സെക്രട്ടറി സഞ്ജയ് മിശ്ര തലവനായ കമ്മിറ്റിയിൽ കേന്ദ്ര സർവ്വീസിൽ ഉന്നത ഉദ്യോഗസ്ഥരായി വിരമിച്ച അരുൺ ഗോയൽ ഗിരിരാജ് പ്രസാദ് ഗുപ്ത എന്നിവർ അംഗങ്ങളാണ് കഴിഞ്ഞ മാസം അഞ്ചിനാണ് കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കാനും സംസ്ഥാനത്തെ രണ്ടായി വേർതിരിക്കാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്

നടപടിയുടെ പ്രധാനൃത്തെക്കുറച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത് ജമ്മു കശ്മീരിലെ ജനങ്ങൾക്കാണെന്നും ഇന്ന് ജമ്മുവിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

ജമ്മു കശ്മീരിലെ സാധാരണ ജനങ്ങൾ നടപടിക്ക് അനുകൂലമാണെന്നും കുറച്ചു കുടുംബങ്ങൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നതെന്നുംക്ട അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിനനുസ്ത്രിച്ചു ഇന്റർനെറ്റ് നിരോധനം നീക്കുമെന്നും ചോദൃത്തിനുത്തരമായ്ടി അദ്ദേഹം അറിയിച്ചു

കശ്മീർ ഡിവിഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായി ചീഫ് സെക്രട്ടറി ബി

ആർ സുബ്രഹ്മണ്യം ഇതു സംബന്ധിച്ച് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി

ഈ മാസം ഒന്നിനു തുടങ്ങി ആറ് മാസം കൊണ്ട് ആപ്പിൾ സംഭരിക്കാനാണ് പദ്ധതി

അത്തം മുതൽ പത്ത് നാളുകൾ മലയാളി ഉത്സാഹത്തോടെ കാത്തിരുന്ന തിരുവോണത്തെ വരവേൽക്കാൻ മലയാളക്കര ഒരുങ്ങി പ്രളയക്കെടുതികളും പ്രകൃതിക്ഷോഭങ്ങളും തിരുവോണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും ഇല്ലാതാക്കുമെന്ന ആശങ്കകൾക്കിടയിലും ഒരുമയുടെയും അതിജീവനത്തിന്റെയും സന്ദേശവുമായാണ് മലയാളി ഇത്തവണയും മാവേലിയെ വരവേൽക്കുന്നത് സംസ്ഥാനത്തുടനീളം വൈവിധൃമാർന്ന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക സമിതികൾ റസ്റ്ഡ്ൻസ് അസ്നോസിയേഷനുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ഥമായ കലാകായിക പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട് ഉതാട ദിനമായ ഇന്ന് നഗരവീഥികളും കടകമ്പോളങ്ങളും ജനനിബിഡ്മായിരുന്നു

പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്റത് ഇമാം ഹുസൈനേയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും സത്യത്തിന്റെയും നീതിയുടെയും പ്രതീകമായി കർബലയിൽ ബലികഴിച്ചതിന്റെ സ്മരണയ്ക്കായാണ് മുസ്തീംഗങ്ങൾ മുഹ്റം ആചരിക്കുന്നത് ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ ചടങ്ങുകൾ നടന്നു

ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയുടെ യോഗത്തിൽ ന്യൂനപക്ഷ പീഡനം സംബന്ധിച്ചു നിരവധി പരാതികൾ പാകിസ്ഥാനെതിരെ ഉന്നയിച്ച് വിവിധ സംഘടനകൾ രംഗത്തെത്തി ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് സേവ് ദ ബലൂച് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിനിൽ പാകിസ്ഥാനിലെ വംശഹത്യ അവസാനിപ്പിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്

അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാകും

പാകിസ്ഥാൻ എഫ് എ റ്റി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ തുടരുമോ അതോ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറുമോ എന്ന കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും

ബി

ജമ്മു കശ്മീരിൽ പ്രധാനമന്ത്രി സ്വീകരിച്ച നടപടികൾ ലോകം അംഗീകരിച്ചരിട്ടിയും മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു്